പ്രവാസികളുമായി ഇന്ന് ഏഴ് വിമാനങ്ങൾ

അതേസമയം രോഗമുക്തി നേടുന്നവരുഉടു എണ്ണത്തിൽ രാജ്യത്ത് ഗണ്യവായ പുരോഗതിയുണ്ട്

രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്

സി

ഗുജറാത്ത് തമിഴ്നാട് ഉത്തർപ്രദേശ് ഡൽഹി രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കേന്ദ്ര സംഘം സന്ദർശിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുമായിചേർന്ന് രോഗബാധ നിയന്ത്രണ വിധേയമാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാളെ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് കൂടിക്കാഴ്ച ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനുശേഷം പ്രധാനമന്ത്രി ഇത് അഞ്ചാം തവണയാണ് മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത് കോവിഡ് പ്രതിരോധ നടപടികളും ലോക്ഡൌണിൽ ഇളവുകൾ വരുത്തുന്നത് സംബന്ധിച്ചും

അതിഥി തൊഴിലാളികളുടെ യാത്ര ഹോട്ട് സ്പോട്ടുകളിൽ കൊറോണ നിയന്ത്രണ നടപടികൾ തുടങ്ങിയവയും ചർച്ചാ വിഷയമാകും

കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പ്രതിബന്ധങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കാൻ സൌകരൃം ഒരുക്കണമെന്ന് വീഡിയോ കോൺഫറൻ സിംഗിലൂടെ കൂടിക്കാഴ്ചയിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്താൻ നടപടി വേണമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ അഭ്യർത്ഥിച്ചു വന്ദേഭാരത് ദൌത്യത്തിന് സംസ്ഥാനങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് ശ്രീ

കൂടുതൽ ശ്രമിക് പ്രത്യേക്ക് ട്രെയിനുകൾ സർവ്വീസ് നടത്താൻ സംസ്ഥാനങ്ങളുടെ സഹ്ക്കിർണ്ടവും അദ്ദേഹം ആവശ്യപ്പെട്ടു

വൃവസായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മതിയായ ദുരന്ത നിവാരണ സജ്ജീകരണങ്ങളുണ്ടെന്ന് ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണം ലോക്ഡൌൺ നിലനിൽക്കുമ്പോഴും അതിനുശേഷവും വ്യാവസായിക പ്രവർത്തനങ്ങൾ സൂരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പുനരാരംഭിക്കുന്ന തിനുള്ള നടപടികൾ സ്വീകരിക്കണം

എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേയ്ക്കുള്ള വിമാനം റദ്ദ് ചെയ്തു ചൊവ്വാഴ്ച ഇത് സർവ്വീസ് നടത്തും

വന്ദേഭാരത് ദൌതൃത്തിൽ രാജ്യത്തേയ്ക്ക് മടങ്ങാനാകുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്ന് കൊച്ചിയിലേ യ്ക്ക് യാത്ര തിരിക്കും മുമ്പ് കാലാലംബൂർ വിമാനത്താവളത്തിൽ ശ്രീ ഭട്ട് പറഞ്ഞു

രണ്ടാംഘട്ടത്തിൽ രാജ്യത്ത് തിരിച്ചെത്തുക

പ്രവാസികളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി സിയാൽ ഡയറക്ടർ എ

നായർ ആകാശവാണിയോട് പറഞ്ഞു

വയനാട് ജില്ലയിൽ മൂന്ന് തൃശൂരിൽ രണ്ട് എറണാകുളം മലപ്പുറം ജില്ലകളിൽ നിന്നും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന നാല് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി കണ്ണൂർ ജില്ലയിൽ രണ്ട് പേരുടെയും പാലക്കാട് കാസർകോഡ് ജില്ലകളിൽ ഓരോരുത്തരുടെയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്